പ്രധാനമന്ത്രി നരേന്ദ്രമോദി

തെരഞ്ഞെടുത്തു

മഹാരാഷ്ട്രയിലെ സംഗോളയിൽ നിന്ന് പശ്ചിമ ബംഗാളിലെ ഷാലിമാറിലേക്കുള്ള കിസാൻ ട്രെയിൻ സർവീസാണ് പ്രധാനമന്ത്രി വീഡിയോ കോൺഫെറൻസിങ്ങിലൂടെ ഉദ്ഘാടനം ചെയ്തത് രാജ്യത്തിന്റെ വികസനത്തിൽ കർഷകർ പ്രധാന പങ്കു വഹിക്കുന്നവരാണെന്നും അവരുടെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുന്നതിൽ കേന്ദ്ര സർക്കാർ എന്നും പ്രതിജ്ഞാബദ്ധ മാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു പുതിയ കാർഷിക പരിഷ് കാരങ്ങളിലൂടെയും ഇ നാം പോലുള്ള പദ്ധതികളിലൂടെയും ഒരു രാഷ്ട്രം ഒരു കാർഷിക വിപണി എന്ന ദിശയിലേക്ക് രാജ്യം നീങ്ങുകയാണെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു ചടങ്ങിൽ കേന്ദ്ര കൃഷി മന്ത്രി നരേന്ദ്ര സിംഗ് തോമറും റെയിൽവേ മന്ത്രി പിയുഷ് ഗോയലും പങ്കെടുത്തു പച്ചക്കറികളും പ്രഴവർഗങ്ങളും നിശ്ചിത സ്ഥലങ്ങളിലേക്ക് കേടുകൂടാതെ എത്തിക്ക്റ്ൻ കിസാൻ ട്രെയിനിന് കഴിയും

രാജ്യത്ത് മെച്ചപ്പെട്ട അടിസ്ഥാന സൌകര്യങ്ങൾ ഒരുക്കുന്നതിനും ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനുമുള്ള നടപടികൾ കേന്ദ്ര സർക്കാർ സ്വീകരിച്ചു ്വരുന്നതായും അദ്ദേഹം വ്യക്തമാക്കി

എയർപോർട്ട് എക്സ്പ്രസ് ലൈനിൽ പൂർണ്ണമായും പ്രവർത്തിക്കുന്ന ദേശീയ കോമൺ മൊബിലിറ്റി കാർഡ് സേവനവും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു ദേശീയ ്കോമൺ മൊബിലിറ്റി കാർഡ് രാജ്യത്തിന്റെ ഏത് ഭാഗത്തുനിന്നും നൽകുന്ന റുപേ ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ച് യാത്രക്കാരെ എയർപോർട്ട് എക്സ്പ്രസ് ്ലൈനിൽ യാത്ര ചെയ്യാൻ പ്രാപ്തരാക്കും മെട്രോ ഉൾപ്പെടെയുള്ള ആധുനിക ഗതാഗത മാർഗ്ഗങ്ങൾ നഗരത്തിലെ ജനങ്ങളുടെ ആവശ്യങ്ങൾക്കനുസൃതമായിരിക്കണമെന്നും വിവിധ നഗരങ്ങളിലെ വിവിധ തരം മെട്രോ റെയിലുകൾ സർക്കാർ പ്രവർത്തനാസജ്ജമാക്കിയിരിക്കുന്നതു ഇതുകൊണ്ടാണെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു ലൈറ്റ് മെട്രോ സർവീസുകൾ വികസിപ്പിക്കുന്നതിൽ കേന്ദ്ര സർക്കാർ കാര്യമായ പുരോഗതി കൈവരിച്ചു

ദേശീയ ഗതാഗതത്തിന് ഏകീകൃത പ്രവേശനം ഉറപ്പാക്കുന്നതിലെ പ്രധാന പ്രവട്ടമാണ് ദേശീയ കോമൺ മൊബിലി്റ്റി കാർഡ് എന്നും പ്രധാനമന്ത്രി പറഞ്ഞു

പ്രയാഗ് രാജിൽ സ്ഥിതിചെയ്യുന്ന ഇടനാഴി നിർവഹണ നിയന്ത്രണ കേന്ദ്രവും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും

അലുമിനിയം ക്ഷീരം വസ്ത്രനിർമാണം ഗ്ലാസ് ഉപകരണം കളിമൺ തുടങ്ങിയ പ്രാദേശിക വ്യവസായങ്ങൾക്ക് ഈ ഇടനാഴി പുതിയ അവസരങ്ങൾ തുറന്നു നൽകും

അമിത് ഷാ പറഞ്ഞു

നാളെ മുതൽ ജനുവരി ഒന്ന് വരെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ അതിശൈത്യം അനുഭവപ്പെടുമെന്ന് മുന്നറിയിപ്പിൽ പറയുന്നു

ആന്ധ്രപ്രദേശ് ഗുജറാത്ത് പഞ്ചാബ് അസം എന്നീ നാല് സംസ്ഥാനങ്ങളിലാണ് ഇന്നും നാളെയും മോക്ക് ഡ്രിൽ നടത്തുന്നത്

യുകെയിൽ നിന്ന് മടങ്ങിയെത്തിയ ചിലർ കോവിഡ് പോസിറ്റീവ് ആയതിനെ തുടർന്ന് തമിഴ്നാട്ടിൽ സ്വീകരിച്ച പ്രതിരോധ നടപടികളെപ്പറ്റി ആരോഗ്യ സെക്രട്ടറി ജെ

കെ രാജുവാണ് ഡെഫ്യൂട്ടി മേയർ

എച്ച്അനിൽകുമാറാണ് കൊച്ചി മേയർ

തൃശൂരിൽ എം കെ വർഗീസ് മേയറാകും

കോഴിക്കോട് കോർപ്പറേഷനിൽ മേയറായി എൽ ഡി എഫിലെ ബീനാഫിലിപ്പും ഡെപ്യൂട്ടി മേയറായി സി

മോഹനനാണ് കണ്ണൂർ കോർപറേഷൻ മേയർ

മുൻ ഇന്ത്യൻ നായകൻ മഹേന്ദ്ര സിങ് ധോണി ദശാബ്ദത്തിലെ സ്പിരിറ്റ് ഓഫ് ക്രിക്കറ്റ് പുരസ്കാരം സ്വന്തമാക്കി